പ്രളയമേഖലയിൽ മുഖ്യമന്ത്രിയുടെയും സംഘത്തി ന്റെയും വ്യോമനിരീക്ഷണം തുടരുന്നു

പ്രളയബാധിത പ്രദേശങ്ങളിൽ സാങ്കേതിക പ്രശ്നങ്ങൾ നോക്കാതെ ഇടപെടാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി ടി പി രാമകൃഷ്ണൻ കർക്കിടക വാവിനോടനുബന്ധിച്ച ബലിതർപ്പണ ചടങ്ങു കൾ തുടരുന്നു മഴക്കെടുതിയിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് പത്തു ലക്ഷം രൂപ സഹായധനം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു വീട് നഷ്ടപ്പെട്ടവർക്കും മരിച്ചവരുടെ ആശ്രി തർക്കും നാലുലക്ഷം രൂപ നൽകുമെന്ന് വയനാട് കലക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു സർട്ടി ഫിക്കറ്റുകളും മറ്റ് രേഖകളും നഷ്ടപ്പെട്ടവർക്ക് സൌജന്യമായി അവ ലഭ്യമാക്കാനും പാഠപുസ്തകങ്ങൾ നഷ്ട്ടപ്പെട്ട കുട്ടികൾക്ക് സൌജന്യമായി അവ നൽകാനും മുഖ്യമന്ത്രി ജില്ലാ അധികൃതർക്ക് നിർദ്ദേശം നൽകി കനത്ത മഴയെത്തുടർന്ന് പ്രളയ ദുരിതം ബാധിച്ച സ്ഥലങ്ങ ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം തുടരുന്നു രാവിലെ ഹെലികോപ്ടർ മാർഗ്ഗം തിരുവനന്തപുരത്തുനിന്ന് പുറപ്പെട്ട സംഘം ഇടുക്കി കട്ടപ്പനയി ലാണ് ആദ്യം സന്ദർശനം നടത്താനിരുന്നത് എന്നാൽ കാലാ വസ്ഥ പ്രതികൂലമായതിനാൽ ഇടുക്കിയിൽ ഇറങ്ങാനായില്ല തുടർന്ന് ഇവിടെനിന്നും മുഖ്യമന്ത്രിയും സംഘവും വയനാട്ടി ലേക്ക് തിരിച്ചു ബത്തേരിയിൽ ഇറങ്ങിയ മുഖ്യമന്ത്രി മുണ്ടേരി യിലെ ദുരിതാശ്ചാസ ക്യാമ്പ് സന്ദർശിച്ചു

കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽക്കൂടി വ്യോമനിരീ ക്ഷണം നടത്തിയ ശേഷം മുഖ്യമന്ത്രി നെടുമ്പാശ്ശേരിയിലേക്ക് പോകും മന്ത്രി ഇ ചന്ദ്രശേഖർൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചീഫ് സെക്രട്ടറി ടോം ജോസ് ഡി

പി ലോക്നാഥ് ബെഹ്റ തുടങ്ങിയവരും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്

ഇന്നലെ വൈകിട്ട് മുതൽ ചെറുതോണി അണക്കെട്ടിന്റെ അഞ്ച് ഷട്ടറുകളും തുറന്നുവിട്ടതിനെത്തുടർന്നാണ് ഒരടിയോളം ജലനിരപ്പ് കുറഞ്ഞത്

എം മണി പറഞ്ഞു ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ രക്ഷാപ്ര വർത്തനങ്ങൾക്കായി സൈന്യം അടിമാലിയിൽ എത്തി

കൊരങ്ങാട്ടി കൊടകല്ല് പെട്ടിമുടി മാങ്കുളം പള്ളിവാസൽ മേഖലകളിൽ മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിന് നടപടി ആരംഭിച്ചു

അടിമാലി വിശ്വദീപ്തി സ്കൂളി ലാണ് സൈന്യം ക്യാമ്പ് ചെയ്യുന്നത്

വരും ദിവസങ്ങളിലും സൈന്യം അടിമാലി മേഖലയിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരും ജലനിരപ്പ് സംഭരണ ശേഷിയേക്കാൽ കുറഞ്ഞതോടെ ഇടമലയാർ അണക്കെട്ടിന്റെ മൂന്നു ഷട്ടറുകൾ അടച്ചു

ജലനിരപ്പ് താഴ്ന്നതോടെ രാവിലെ ഏഴുമണിക്ക് തന്നെ മൂന്നാം നമ്പർ ഷട്ടർ അടച്ചിരുന്നു ഒരു ഷട്ടർ ഉച്ച കഴിഞ്ഞു അടക്കും

എന്നാൽ പനമരത്തും മാനന്തവാടിയിലും വെള്ളം ഇറങ്ങിയിട്ടി ല്ല മൈസൂർ പാതയിൽ വെള്ളം കയറിയതിനെത്തുടർന്ന് ഗതാ ഗതം തടസ്സപ്പെട്ടു കബനി നദി കരകവിഞ്ഞൊഴുകുകയാണ് ദുരിത ബാധിത പ്രദേശങ്ങളിൽ എൻ

ആർ എഫ് നാവിക സേന കര സേന എന്നിവയുടെ നേതൃത്വത്തിൽ ദുരിതാശ്ചാസ പ്രവർത്തന ങ്ങൾ പുരോഗമിക്കുന്നതായി അധികൃതർ അറിയിച്ചു

സ്ഥിതിഗതികൾ നിയന്ത്രണവിധേയമാകുംവരെ രക്ഷാപ്ര വർത്തനരംഗത്ത് ്തുടരാൻ സേനാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി ഫയർ ആന്റ് റസ്ക്യൂ മേധാവി എ ഹേമചന്ദ്രൻ അറിയിച്ചു ദുർന്ത നിവാരണ പ്രവർത്തനത്തിന് സേന സജ്ജമാ ണെന്നും ജാഗ്രത തുടരുമെന്നും അദ്ദേഹം സ്വകാര്യ ചാനലിനോട് പറഞ്ഞു പ്രളയബാധിത പ്രദേശങ്ങളിൽ സാങ്കേതിക പ്രശ്നങ്ങൾ നോക്കാതെ ഇടപെടാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയ തായി മന്ത്രി ടി

കോഴിക്കോട് വയ നാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന താമരശ്ശേരി ചുരം വഴി യുള്ള ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ ശ്രമം നട ത്തിവരുന്നതായും മന്ത്രി കോഴിക്കോട്ട് അറിയിച്ചു

ദുരിതാശ്ചാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മരുന്നും ഭക്ഷണങ്ങളും മറ്റ് അവശ്യ വസ്തു ക്കളും എത്തിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീക രിച്ചതായും മന്ത്രി പറഞ്ഞു കോഴിക്കോട് കലക്ടറേറ്റിൽ ചേർന്ന അവലോകത്തിന് യോഗത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മന്ത്രി എ

അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ പരിഹരിക്കാനാണ് ഗവൺമെന്റ് ഊന്നൽ നൽകുന്നതെന്ന് ്മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതിനാൽ പാലക്കാട് മീങ്കര ഡാം ഏതാനും ദിവസങ്ങൾക്കകം തുറന്നു വിടുമെന്ന് ജില്ലാ ദുരന്തനിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ കലക്ടർ ഡി ബാലമുരളി അറിയിച്ചു വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്ന സാഹ ചര്യത്തിലാണിത് ഗായത്രിപുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും കലക്ടർ അറിയിച്ചു

ഇന്നും നാളെയും പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശകർക്ക് നിരോധനം ഏർപ്പെടുത്തി

ജില്ലയിലെ പ്രധാനപ്പെട്ട ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നതിനാലും എല്ലാ പുഴകളും ജലാശയങ്ങളും കരകവിഞ്ഞ് ഒഴുകുന്നതിനാലുമാണ് നടപടി പാലക്കാട് ജില്ലയിൽ കാലവർഷക്കെടുതിയിൽ നിർത്തിവെച്ച ജലവിതരണം പുനഃസ്ഥാപിച്ച് തുടങ്ങി ചെർപ്പുളശ്ശേരി മണ്ണാർക്കാട് കുടിവെള്ള പദ്ധതികൾ പുനഃരാരംഭിച്ചു

കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി തളിപ്പറമ്പ് താലൂക്കുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാലവർഷക്കെടുതി സംബന്ധിച്ച് മന്ത്രി കെ

ഇരിട്ടി ബ്ലോക്ക് ഓഫീസിലായിരുന്നു യോഗം നാശനഷ്ടത്തിന്റെ കണക്ക് ഉടൻ തന്നെ പൂർത്തിയാക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി

ഇന്നലെ രാത്രി തുട ങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ് സംസ്ഥാനത്തെ പ്രളയബാധിത പ്രദേശങ്ങൾ നേരിൽ കാണാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ്സിംഗ് നാളെ കേരള ത്തിലെത്തും

കൊച്ചിയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് ഇരുവരും സ്ഥിതിഗതികൾ വിലയിരുത്തും എറ ണാകുളം ഗസ്റ്റ് ഹൌസിൽ രാജ്നാഥ് സിംഗ് സംസ്ഥാന മന്ത്രി മാരുമായും കൂടിക്കാഴ്ച നടത്തും കനത്ത മഴ നാശം വിതച്ച കേരളത്തില സ്ഥിതിഗതികൾ ആശങ്കാ ജനകമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു രക്ഷാ പ്രവർത്തനങ്ങൾക്കും മറ്റും കോൺഗ്രസ് പ്രവർത്തകർ മുന്നിട്ടിറങ്ങണമെന്നും രാഹുൽ ടിറ്ററിലൂടെ ആഹ്വാനം ചെയ്തു കർക്കിടക വാവിനോടനുബന്ധിച്ച് പിതൃമോക്ഷം തേടി പതി നായിരങ്ങൾ തീർത്ഥഘട്ടങ്ങളിൽ ബലിതർപ്പണം നടത്തുന്നു മിക്ക യിടങ്ങളിലും ചടങ്ങുകൾ പുലർച്ചെതന്നെ ആരംഭിച്ചു തിരുനാ വായ നാവാമുകുന്ദ ക്ഷേത്രം വയനാട് തിരുനെല്ലി കോഴിക്കോട് വരക്കൽ കടപ്പുറം ശ്രീകണ്ഠേശ്വരക്ഷേത്രം കാരന്തൂർ ഹരഹര മഹാദേവക്ഷേത്രം കൊയിലാണ്ടി ഉരുപുണ്യകാവ് കാസർകോട് തൃക്കണ്ണാട് ത്രയംബേശ്വര ക്ഷേത്രം എന്നിവിടങ്ങിലും തർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് ആലുവ ശിവരാത്രി മണപ്പുറത്ത് ഇക്കുറി പതിവ് രീതിയിൽ ബലി തർപ്പണ ചടങ്ങ് നടന്നില്ല

പകരം മണപ്പുറത്തിനടുത്ത റോഡി ലാണ് തർപ്പണം നടക്കുന്നത് ഭക്തർ പുഴയിലിറങ്ങുന്നത് സുരക്ഷാ വിഭാഗം കർശനമായി വിലക്കിയിട്ടുണ്ട് പുഴയുടെ തീരത്തുള്ള അദ്വൈതാശ്രമത്തിൽ തർപ്പണത്തിന് സൌകരൃം ഒരുക്കിയിരുന്നതിനാൽ നിരവൃധി പേർ ഇവിടെയാണ് ചടങ്ങുകൾ നടത്തിയത് കാലടി ചേലാമറ്റം ക്ഷേത്രത്തിലും നിര വധി ഭക്തർ പിതൃക്കൾക്ക് തർപ്പണം നടത്തി

ഇവയ്ക്ക് പുറമെ ജില്ലയിലെ മറ്റ് ചില ക്ഷേത്രങ്ങളിലും പിതൃ തർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ട് ഇതുവരെ എറണാകുളം ജില്ല യിൽ കാര്യമായ അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കണ്ണൂരിൽ കർക്കിടക വാവുബലിയോടനുബന്ധിച്ച സ്നാന ഘട്ടങ്ങളിൽ ബലിതർപ്പണത്തിന് നിരവധി വിശ്വാസികളെത്തി പയ്യാമ്പലം കടപ്പുറം തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രം തോട്ടട കട പ്പുറം തലശ്ശേരി ജഗന്നാഥക്ഷേത്രം തലായി കടപ്പുറം എന്നിവിട ങ്ങളിൽ പുലർച്ചെ മുതൽ ഒട്ടേറെപേർ എത്തിയിരുന്നു ഇന്നലെ സമാപിച്ച പാർലമെന്റ് വർഷകാല സമ്മേളനം തികച്ചും തൃപ്തികരമായിരുന്നുവെന്ന് ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജനും പാർലമെന്ററികാര്യ മന്ത്രി അനന്തകുമാറും വിലയിരുത്തി

പിന്നാക്കവിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകുന്ന ബില്ലും പട്ടികജാതിപട്ടികവർഗ്ഗ പീഡന നിരോധന നിയമം പുനഃ സ്ഥാപിക്കുന്ന ബില്ലും പാസ്സാക്കിയതോടെ പാർലമെന്റ് സമ്മേ ളനം സാമൂഹ്യനീതിയുടെ ഉത്സവകാലമായി മാറിയെന്ന് അനന്ത കുമാർ വിശേഷിപ്പിച്ചു

കാസർകോട്ട് എയിംസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജന കീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംഗമം സാമൂഹിക പ്രവർത്തക ദയാഭായ് ഉദ്ഘാടനം ചെയ്തു എൻഡോസൾഫാൻ ദുരിത ബാധിതരായ കുട്ടികളുടെ ഓർമ്മ കൾക്ക് മുന്നിൽ തിരിനാളം തെളിയിച്ചായിരുന്നു ഉദ്ഘാടനം